അസമിൽ വിദ്യാഭ്യാ്ട്സ് സ്ഥാപനങ്ങൾ ഇന്നുമുതൽ തുറന്നു ന് പ്രവർത്തിക്കും

അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നാളെ

റൈഡേഴ്സും ചെന്നൈ സൂപ്പർ കിങ്സും ജേതാക്കൾ

രാജ്യത്തെ ചരക്ക് സേവന നികുതി വരവിൽ മികച്ച പുരോഗതി നേടിയതായി ധനമന്ത്രാലയം അറിയിച്ചു

ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ മുതൽ നികുതി വരുമാനം ക്രമേണ വർധിച്ച് വരികയാണ് ഒക്ടോബറിൽ ലഭിച്ച ജി

പ്രദേശത്ത് ഭീകര സാന്നിധ്യമുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് തെരച്ചിൽ ആരംഭിച്ചത് അതിനിടെയാണ് ഭീകരരുടെ ഭാഗത്തു നിന്നും ശക്തമായ വെടിവയ്പ്പുണ്ടായത് നിരവധി ഭീകരാക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിച്ച സൈഫുള്ളയ്ക്കായി സേന തെരച്ചിൽ നടത്തി വരികയായിരുന്നു കഴിഞ്ഞ മേയ് മാസത്തിൽ ഹിസ്ബുൾ ചീഫ് കമാൻഡർ റിയാസ് ഹായികോ കൊല്ലപ്പെട്ട ശേഷമാണ് സൈഫുള്ള ചുമതലയേറ്റത് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പ്രദേശത്ത് നിന്നും കണ്ടെടുത്തിട്ടുണ്ട്

ചരക്കു നീക്കങ്ങളിൽ നിന്നാണ് കഴിഞ്ഞ മാസ്സം ്റെയിൽവേയ്ക്ക് മികച്ച നേട്ടമുണ്ടായത്

ഇതുവഴി യാത്രക്കാർക്ക് സുരക്ഷിതവും സൌകര്യ പ്രദവുമായ യാത്ര ഒരുക്കുകയാണ് ലക്ഷൃമെന്ന് റെയിൽവേമന്ത്രി പിയൂഷ് ഗോയൽ വ്യക്തമാക്കി

പി മുതൽ സർവകലാശാല തലം വരെയുള്ള ക്സാസ്സുകൾ ഇന്നുമുതൽ പുനരാരംഭിക്കും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ക്ലാസ്സ് ആരംഭിക്കുകയെന്ന് വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ബി കല്യാൺ ചക്രവർത്തി അറിയിച്ചു ഹാജർ നിർബന്ധമാക്കില്ല സമയക്രമ പട്ടിക സംബന്ധിച്ച കാരൃങ്ങൾ സ്ഥാപന അധികൃതർക്ക് തീരുമാനിക്കാം ഓൺലൈൻ രീതിയിലുള്ള ക്സാസ്സുകൾ തുടരാമെന്നും വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി അറിയിച്ചു

ക്ലാസ് മുറികൾ അധ്യാപകരുടെ വിശ്രമമുറികൾ ഭിന്നശേഷിക്കാർക്കും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പ്രത്യേകം പ്രത്യേകം ശുചിമുറികൾ എന്നിവ ഇതിന്റെ ഭാഗമായി നിർമിക്കും

ഒരുക്ക്ങ്ങൾ അവസാന ഘട്ടത്തിലാണെന്ന് തെരഞ്ഞെടുപ്പ് വൃത്തങ്ങൾ അറിയിച്ചു

കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് വോട്ടെടുപ്പ്

അമേരിക്കയിലും ഫ്രാൻസ് ബ്രിട്ടൺ ഇറ്റലി തുടങ്ങിയ യൂറോപൃൻ രാജൃങ്ങളിലും പ്രതിദിന രോഗബാധിതരുടെ എണ്ണം കുത്തനെ ഉയർന്നിട്ടുണ്ട്

എൽ ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരങ്ങളിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനും ചെന്നൈ സൂപ്പർ കിങ്സിനും വിജയം വിശദാംശങ്ങളുമായി സൂരേഷ്

ഈ തോൽവിയോടെ രാജസ്ഥാൻ ടൂർണമെന്റിൽ നിന്ന് പുറത്തായപ്പോൾ കൊൽക്കത്ത പ്ലേ ഓഫ് സാധൃത നിലനിർത്തി

ഇന്ന് അബുദാബിയിൽ ഡൽഹി ക്യാപിറ്റൽസും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഏറ്റുമുട്ടും

സി

ഐ

റിപ്പബ്ധിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി ഡോണൾഡ് ട്രംപും ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി ജോ ബൈഡനും തമ്മിലാണ് മത്സരം പ്രചാരണം ആദ്യ ഘട്ടത്തിലാണ് ട്രംപ് മിഷിഗൺ അയോവ നോർത്ത് കരോലിന ജോർജിയ ഫ്ളോറിഡ സംസ്ഥാനങ്ങളിൽ അഞ്ച് റാലികളിൽ പങ്കെടുത്തു ബൈഡൻ പെൻസിൽ വാനിയയിലാണ് പ്രചാരണം നടത്തുന്നത്

ഒരു ദശാബ്ദമായി ലിബിയയിൽ ആഭ്യന്തര സംഘർഷമാണ്

കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ച ജനകീയ പ്രക്ഷോഭത്തെ തുടർന്നാണ് ഭരണഘടനാ ഭേദഗതികൾ വരുത്താനുള്ള ഹിതപരിശോധനയ്ക്ക് പ്രസിഡന്റ് അബ്ദുൾ മജീദ് തെബ്ബൌൺ നിർബന്ധിതനായത്